പാലാ നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാൾ ഒരുക്കങ്ങൾ പൂർത്തിയായി

കുറയ്ക്കാൻ സംസ്മാന ഗവൺമെന്റ് തീരുമാനിച്ചു

ചെന്നൈ ബംഗളൂരു വ്യവസായ ഇടനാഴി കൊച്ചിയിലേക്ക് നീട്ടുന്ന നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം

മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വാർത്താസമ്മേളനത്തിലാണ് തീയതികൾ പ്രഖ്യാപിച്ചത്

എം എൽ എ ആയിരുന്ന പി ബി അബ്ദുൾ റസാക്കിന്റെ മരണത്തെ തുടർന്നാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒഴിവ് വന്നത്

നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ നാലാണ്

ഒറ്റഘട്ടമായാണ് ഇരു സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുക

ശ്രീനാരായണ ഗുരു സമാധി പ്രമാണിച്ച് പരസ്യപ്രചാർൺംമൂന്ന് മുന്നണികളും ഇന്നലെ അവസാനിപ്പിച്ചിരുന്നു്

യു ഡി എഫിലെ ജോസ് ട്ടോം എൽ ഡി എഫിലെ മാണി സി കാപ്പൻ എൻ ഡി എ യുടെ എൻ ഹരി എന്നിവരാണ് മത്സര രംഗത്തുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾ വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

സംസ്ഥാന ഗവൺമെന്റിനെതിരായ ജന്റവികാര്ം ശക്തമായി അലയടിക്കുമെന്നും ഗവൺമെന്റിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ കിട്ടിയ സുവർണാവസരമാണ്ട്ര്ത്ത്രഞ്ഞെടുപ്പെന്നും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു

എഫിന്റെ വിജയം സുനിശ്ചിതമെന്ന് സി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ

ഡി എഫ്

മുഖ്യമന്തി ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴത്തുക കുറയ്ക്കാൻ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചുചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം

ഏതൊക്കെ തരത്തിലുള്ള പിഴയാണ് കുറയ്ക്കാൻ കഴിയുകയെന്ന് റിപ്പോർട്ട് നൽകാൻ ഗതാഗത പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു എന്നാൽ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവയിൽ കേന്ദ്രം നിശ്ചയിച്ച പിഴത്തുക കുറയ്ക്കാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ലെന്നാണ് നിയമോപദേശം ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് വീണ്ടും കത്തയയ്ക്കാനും യോഗത്തിൽ ധാരണയായി

ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ പാലക്കാട് ക്ടുശൂർ കളക്ടർമാരോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

മഹാസമാധി സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ആർ

ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഇടനിലക്കാരുടെ ആവശ്യമില്ലെന്ന് പഠിപ്പിച്ച മഹാനുഭാവനാണ് ശ്രീനാരായണ ഗുരുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ശ്രീനാരായണഗുരുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും ആശയങ്ങൾ സമാനമാണെന്ന് ശ്രീ

സ്വാതന്ത്ര്യസമരത്തോടൊപ്പം ജാതീയമായ വിവേചനങ്ങൾക്കെതിരായ പോരാട്ടവും ഗാന്ധിജി നയിച്ചു

ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സമ്മേളനം ഉൾപ്പെടെ നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കാലാവസ്ഥ തുടങ്ങിയവയാണ് പൊതുസഭയിൽ ഈ വർഷത്തെ വിഷയങ്ങൾ നാളെ ഹൂസ്റ്റണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപുമായി ചേർന്ന് ഹൌഡി മോദി ചടങ്ങിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും

ലാൻഡറുമായുള്ള ആശയവിനിമയം പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി ഐ എസ് ആർ ഒ

എസ് ആർ ഒ ഇക്കാര്യം വ്യക്തമാക്കിയത്

കൊച്ചി തുറമുഖ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോ

കൈറ്റ് സ്കൂളുകളുടെ സമഗ്ര വിവരങ്ങൾ യു ആർ കോഡ് രൂപത്തിൽ കൈറ്റ് പൊതുജനങ്ങൾക്കായി പ്രസിദ്ധീകരിക്കും എല്ലാ സ്കൂളുകളുടെയും പ്രധാന കവാടത്തോട് ചേർന്നാണ് ഇവ പ്രസിദ്ധികരിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കിയിട്ടുള്ള ഹൈടെക് സംവിധാനങ്ങൾ പരിചയപ്പെടുത്താൻ കൈറ്റിന്റെ നേതൃത്വത്തിൽ വീട്ടമ്മമാർക്ക് പ്രത്യക പരിശീലനം നൽകും

എ ജി ഓഢ്റിറ്റിട്ട്ഗിനെ എന്തിനാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഭൂമുക്കുന്നതെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമച്ചിന്ദ്രൻ മസാലബോണ്ടുകൾ വ്വീൽപ്പന നടത്തിയ വകയിൽ എത്ര തുക ഇതുവരെ കിട്ടിയെന്ന് ഗ്വൺമെന്റ് വ്യക്തമാക്കണമെന്നും മുല്ലപ്പള്ളി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പി എസ് സി കെ എസ് യു പി എസ് സി പരീക്ഷാക്രമക്കേട് സംബന്ധിച്ച് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമോ സി ബി ഐ അന്വേഷണമോ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സമരം ആരംഭിക്കുമെന്ന് കെ എസ് യു സുതാര്യമായ അന്വേഷണം നടക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത് കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബാഗേജ് പിടികൂടി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഖത്തറിലേക്കുള്ള യാത്രക്കാരനിൽ നിന്ന് വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ സംശയകരമായ സാഹര്യത്തിൽ ബാഗേജ് പിടികൂടി മലപ്പുറത്ത് നിന്നുള്ള മുഹമ്മദ് മുബാരക് തങ്ങളിൽ നിന്നാണ് ബാഗ് പിടികൂടിയത് ഇയാളിൽ നിന്ന് രണ്ട് കിലോ ഗ്രാം നിരോധിത വസ്തുക്കൾ പിടികൂടി